മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ചർച്ച ചെയ്യും

സംരക്ഷിക്കാൻ പ്രതിജ്ഞാബ്ദ്ധിമെന്ന് ലഡാക്കിൽ ചൈനീസ് സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ട്ലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കരസേന

നടത്താനുള്ള സംവിധാനം രാജ്യത്തുണ്ടെന്ന് ഐ സി എം ആർ

മടങ്ങിയെത്തും കൊച്ചിയിലേക്ക് ഏഴ് വിമാനങ്ങൾ

വോയിസ് ലോക്ക്ഡൌണിനെ തുടർന്ന് രാജ്യത്ത് സംജാതമായ സ്ഥിതിഗതി കളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും സംബന്ധിച്ചാകും ചർച്ച നടക്കുക

സമയോചി തമായി സ്വീകരിച്ച തീരുമാനങ്ങൾ കോവിഡിനെ പ്രതിരോധി ക്കാൻ ഏറെ സഹായിച്ചതായും നാംപ്പാക്കിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോക്ക് പ്ർച്ച് ചെയ്ത് തുടങ്ങി യതായും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ്ട് മർണനിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യ ങ്ങളിലൊന്നാണ് ഇന്ത്യ്യെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങളിലെ ചെറിയ പിഴവുകൾ പോലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഒരു കേണലടക്കം മൂന്നു സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇന്നലെ വൈകിട്ടോടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു

സംഘർഷത്തിനു പിന്നാലെ നടന്ന ചർച്ചകൾ ക്കൊടുവിൽ ഇരൂരാജൃത്തെയും സൈനികർ ഗാൽവാൻ മേഖലയിൽ നിന്നും പിൻമാറിയതായി കരസേന പ്രസ്താവനയിൽ അറിയിച്ചു രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കരസേന പ്രസ്താവനയിൽ വൃക്തമാക്കി

ഇരുഭാഗത്തുമുണ്ടായ ആൾനാശം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നും വിദേശകാരൃ വക്താവ് പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കുക എന്ന ധാരണ ചൈനീസ് സൈനൃം ലംഘിച്ചു അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിലും ഭിന്നതകൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിലും ഇന്ത്യക്ക് ഉറച്ച ബോധ്യമുണ്ടെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഈ മാസം ആറാം തീയതി നടത്തിയ സൈനികതല ചർച്ച ശുഭസൂചകമായിരുന്നുവെന്നും അതിനിട യിലായിരുന്നു ഗാൽവാൻ വാലി യിലെ നിയന്ത്രണ രേഖ മാനിക്കാതെ ചൈനീസ് സേന നീക്കം നടത്തിയെന്നും ശ്രീ അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

സെക്രട്ടറി ജനറലിന്റെ വക്താവ് പതിവ് വാർത്താസൂമ്മേളനത്തിലാണ് ആശങ്ക അറിയിച്ചത്

പ്രശ്നൂത്തിന് സമാധാനമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നതായും ജീവൻ നഷ്ടപ്പെട്ട ്റ്ഐനികരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം യു

കൊറോണ വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒരു ദിവസമുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്

വോയിസ് സ്വകാര്യ ആശുപത്രി വഴി ലഭ്യമീക്കു്ന സൌകര്യങ്ങൾക്ക് ന്യായമായതും സുതാര്യവുമായു നിര്ക്കാണ് ഏർപ്പെടുത്തുന്ന തെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സംസ്ഥാന ങ്ങൾക്ക് നിർദ്ദേശം നൽക്ടി ്തമിഴ്നാട് ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർ പ്രദേശ്ച് രാ്ജസ്ഥാൻ തെലങ്കാന കർണ്ണാടക മധ്യ പ്രദേശ് എന്നീ ൻ ്റ്റ്സ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആര്ട്ടിച്ചിരുന്നു

നിലവിൽ രാജ്യത്ത് പ്രതിദിനം മൂന്ന് ലക്ഷം സാമ്പിളുകൾ പരിശോധിക്കാൻ സൌകര്യമുണ്ടെന്ന് ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

പരിശോധനാ സൌകര്യങ്ങൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നതായാണ് റിപ്പോർട്ട്

ദുബായിൽ നിന്ന് വൈകിട്ട് രണ്ട് വിമാനങ്ങൾ എത്തുമെന്നാണ് റിപ്പോർട്ട്

കൊവിഡ് പരിഗണിച്ച് വോട്ടെടുപ്പ് സമയം ഒരു മണിക്കൂർ കൂടി നീട്ടുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിഷണർ വി ഭാസ്കരൻ പറഞ്ഞു വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെങ്കിലും പട്ടികയിൽ പേരു ചേർക്കാൻ ഇനിയും രണ്ടവസരം കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിഷൻ നൽകും സംവരണ വാർഡുകൾ ഇക്കുറിയും മാറും കൊവിഡ് പ്രചരണ രംഗത്തും മാറ്റം വരുത്തും ബിഹാർ നിയമ സഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ പകുതിയോടെ നടന്നില്ലെങ്കിൽ കൊവിഡ് കാലത്തെ ആദ്യ വിപുലതെരഞ്ഞെടുപ്പാകും കേരള ത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് കൊവിഡ് ഭീതി തുടർന്നാൽ വെർച്ചൽ ക്യാമ്പെയ്ൻ പോലുള്ള പുതിയ പ്രചരണ രീതിക്കാകും ഇനി കേരളം സാക്ഷ്യം വഹിക്കുക

ഇത് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുകയും ്ട് അന്നേഷണ അധികാരികൾക്ക് കൈമാറുകയും ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു ചില സ്ഥാനാർത്ഥികൾ സത്യവ്ടിങ്ങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നതായ പരാതിയുടെ ് അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന തിരഞ്ഞടുപ്പ് കമ്മീഷൻ യോഗം വിഷയം ചർച്ച ചെയ്തു

പതിനഞ്ചംഗ രക്ഷാസേന യുടെ ഈ മാസത്തെ അധ്യക്ഷ പദവി ഫ്രാൻസിനാണ്

അമേരിക്കയിൽ ഇതുവരെ ഇരുപത്തിരണ്ടു ലക്ഷത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്കയ്ക്ക് പിന്നിൽ